ഇതിനായി പ്രസിഡന്റ് ട്രംപ് ഇന്ത്യോടൊപ്പം ഉണ്ടെന്നും പ്രധാനമന്ത്രി

ജെ

അമേരിക്കയിൽ ഹൂസ്റ്റണിലെ എൻ

ജി സ്റ്റേഡിയത്തിൽ അമ്പതിനായിരത്തിലധികം ഇന്ത്യൻ വംശജരായ അമേരിക്കക്കാർ അണിനിരന്ന ഐതിഹാസികമായ ഹൌഡി മോദി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപും പരിപാടിയിൽ പങ്കെടുത്തു ഭീകരതയുടെ ദുരനുഭവങ്ങൾക്കെതിരെ പൊരുതേണ്ട സമയമായതായി ശ്രീ

ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പേര് എടുത്തുപറയാതെ ഭീകരതയ്ക്ക് പിന്നിൽ ആരാണെന്ന് ലോകത്തിന് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരതയ്ക്കെതിരായ പ്രസിഡന്റ് ട്രംപിന്റെ ഉറച്ച നിലപാടിനെ ശ്രീ നരേന്ദ്രമോദി പ്രകീർത്തിച്ചു കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു

നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അന്തഃസത്ത

ഇന്ത്യ അമേരിക്കയുമായി കൈകോർക്കുമ്പോൾ പുതിയ ചരിത്രമാണ് രചിക്കപ്പെടുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരവാദത്തെ ചെറുക്കാൻ ഇന്ത്യയും അമേരിക്കയും ഒറ്റക്കെട്ടായി നീങ്ങുകയാണെന്ന് സമ്മേളനത്തെ അഭിസ്ട്ബ്ബ്ധന ചെയ്ത പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് പറഞ്ഞു

മോദി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങളെ പ്രസിഡന്റ് ശ്ലാഘിച്ചു

പിന്നീട് ഹൂസ്റ്റണിൽ ഗാന്ധി മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മോദി ട്രംപ് സംയുക്ത അഭിസംബോധന ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധത്തിലെ ഏറ്റവും നിർണായക നാഴ്ചികൂക്കല്ലാകുമെന്ന് നയതന്ത്ര കൂട്ടായ്മ ഫോറം പ്രസിഡന്റ് ്ട് മുക്കേ്ഷ് അലി വ്യക്തമാക്കി

പിന്നീട് അദ്ദേഹം യു എൻ ആസ്ഥാനത്ത് സൌരോർജ്ജ പാർക്കും ഗാന്ധി പീസ് ഗാർഡനും ഉദ്ഘാടനം ചെയ്യും

ജസ്റ്റിസുമാരായ കൃഷ്ണമുരാരി എസ് രവീന്ദ്ര ഭട്ട് വി

ജസ്റ്റിസ് ഭട്ട് രാജസ്ഥാൻ ഹൈക്കോടതിയിലും ജസ്റ്റിഫ് ്രാമസുബ്രഹ്മണ്യം ഹിമാചൽപ്രദേശ് പ്ട്ജസ്റ്റിസ് ഹൃഷികേശ്റോയ് കേരള ഹൈക്കോടതിയിലും ചീഫ്ജസ്റ്റിസിന്റെ പദവി വഹിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിലും ഹൈക്കോടതിയിലെ ചീഫ്ജസ്റ്റിസുമാർക്ക് സുപ്രീംകോടതിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ശുപാർശയ്ക്ക് കഴിഞ്ഞ ആഴ്ചയാണ് കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയത്

ജനസംഖ്യ കണക്കെടുപ്പിന്റെ പ്രസക്തിയെക്കുറിച്ച് പൌരൻമാരിൽ അവബോധം സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകത ആഭ്യന്തരമന്ത്രി എടുത്തു പറഞ്ഞു

മുതിർന്ന നേതാക്കളുടെ സന്ദർശനം തനിക്ക് ആദരവാണെന്നും കോൺഗ്രസ് പാർട്ടി ശക്തവും ധീരവുമായി മുന്നോട്ട് പോകുന്നത്പോലെയായിരിക്കും താനെന്നും പി ചിദംബരത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കൂടുംബം ടിറ്റർ സന്ദേശത്തിൽ അറിയിച്ചു

ജെ

ജനങ്ങൾ സാധാരണ പ്രവർത്തനങ്ങളിലേക്ക് തിരികെവരണമെന്നും അദ്ദേഹം പറഞ്ഞു

പൊതുതാൽപര്യങ്ങൾക്കായി നിലകൊള്ളണമെന്നും ബി ജെ

ഈ തീരുമാനം എല്ലാവരുടെയുക്ക് അഭിവൃദ്ധിക്കാണെന്നും അദ്ദേഹം തെറ്റായ്ടപ്പാർത്തകൾവിശ്വസിക്കരുതെന്നും പറഞ്ഞു

പോളിംഗ് വൈകിട്ട് ആറിന് പൂർത്തിയാകും

സമാധാനപരമായ പോളിംഗിനായി എല്ലാ സുരക്ഷാ നടപടികളുംസ്വീകരിച്ചതായി ഛത്തീസ്ഗഡ് മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ സുബ്രത് സാഹു അറിയിച്ചു

മാണിയുടെ നിര്യാണത്തെ തുടർന്നാണ് പാലായിൽ ഉപതെരഞ്ഞെടുപ്പ്

ഏകദേശം ഒരു കോടി ദ്ദേഹ്ലക്ഷം സമ്മതിദായകരാണ് വോട്ടവകാശം വിനിയോഗിക്കുകയെന്ന് ജോയിന്റ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഡോ

സത്താരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതു സമ്മേളനത്തെ എൻ സി

അധ്യക്ഷൻ ശരത് പവാർ അഭിസംബോധന ചെയ്തു

സി

നേതാവ് അജിത് പവാർ പൂനെയിലും ശിവസേന യൂവജന ഘടകം അധ്യക്ഷൻ ആദിത്യതാക്കറെ മുബൈയിലും നടന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു

കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിലച്ചതായി ബ്രിട്ടൻ വ്യോമ അധികൃതർ അറിയിച്ചു ഉപഭോക്താക്കൾ ജീവനക്കാർ വിതരണക്കാർ പങ്കാളികൾ എന്നിവരോട് തോമസ് കുക്ക് ചീഫ് എക്സിക്യൂട്ടീവ് പീറ്റർ ഫാൻക് ഹൌസർ നിരുപാധികം മാപ്പ് അപേക്ഷിച്ചു

രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു

ദക്ഷിണാഫ്രിക്കൻ നായകൻ കിന്റൻ ഡിക്കോക്കിന്റെ ആക്രമണ ബാറ്റിങ്ങാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയത്തിൽ എത്തിച്ചത്